ഉപരാഷ്ട്രപതി എം

ടു പ്തസ് ടു ചർച്ചയിൽ പങ്കെടുക്കാൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ന് ന്യൂഡൽഹിയില്ലെത്തും

പ്രവർത്തനങ്ങൾ ഉൌർജ്ജിതമാക്കി

ഫുട്ബോളിലെ ആദ്യ മത്സരത്തിനായി ഇന്ത്യ ഇന്നിറങ്ങും

വിദ്യാഭ്യാസ വിചക്ഷണനും മുൻ രാഷ്ട്രപതിയുമായ ഡോ

അധ്യാപനത്തിന്റെ മഹത്വം പുതുതലമുറയ്ക്ക് പകർന്ന് ് നൽകുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന്തിനുമായാണ് ദിനാചരണം

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു എന്നിവർ എല്ലാ അധ്യാപകർക്കും ആശംസകൾ നേർന്നു ഗുരു ശിഷ്യ പരമ്പരയുടെ മഹത്തായ പൈതൃകമാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയെന്ന് രാഷ്ട്രപതി ആശംസ സന്ദേശത്തിൽ പറഞ്ഞു കുട്ടികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിലൂടെ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാവുകയാണ് അധ്യാപകരെന്ന് ഉപരാഷ്ട്രപതി എം

വെങ്കയ്യനായിഡു വിതരണം ചെയ്തു

ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തിരുന്നു

ടി യുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വൃവസായ സ്ഥാപനങ്ങൾക്ക് നികുതി റിട്ടേൺ അപേക്ഷ നൽകുന്നുതിനായി കേന്ദ്ര ധനകാര്യമന്ത്രാലയം വിജ്ഞാപനമിറ്റിക്കി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ വാങ്ങൽ വിൽക്കൽ ഐ

പരോക്ഷ നികുതികൾ ഉൾപ്പെട്ട ഉല്പന്ന സേവന നികുതി വ്യവസ്ഥ കഴിഞ്ഞ വർഷം ജൂലൈ ഒന്നിനാണ് നടപ്പിലായത്

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

ഇരു ടു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപരം വർധിപ്പിക്കുക തീവ്രവാദ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എച്ച് വൺ ബി വിസ നടപടി ക്രമങ്ങളിൽ വരാൻ പോകുന്ന മാറ്റങ്ങളിൽ ആശങ്കകൾ കൈമാറുക തുടങ്ങിയവയാണ് ചർച്ചയുടെ ലക്ഷ്യങ്ങൾ ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി ഇന്ത്യ പസഫിക്ക് മേഖലയിലെ സഹകരണം മെച്ചപ്പെടുത്തൽ തുടങ്ങിയവയും ചർച്ചാ വിഷയമാവും ടു പ്ലസ് ടു ചർച്ചയിൽ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് രാജ്യരക്ഷാ മന്ത്രി നിർമ്മലാ സീതാരാമൻ എന്നിവരാണ് രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുക അതിനിടെ ചർച്ചകൾക്കായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്കൽ പോംപിയോ ഇന്നും പ്രതിരോധ സെക്രട്ടറി ജെയിംസ് മാറ്റിസ് നാളെയും എത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇരുവിരും ് നാളെ കൂടിക്കാഴ്ചയും നടത്തും ന്യൂസ്ഡെസ്ക് ആകാശവാണി

ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി കെ

സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം ദിമാപൂർ ജില്ലയിലെ പ്രളയ മേഖലകളിൽ ഇന്നലെ സന്ദർശനം നടത്തി

മേഖലയിലെ ജനങ്ങളുമായി അംഗങ്ങൾ ആശയവിനിമയവും നടത്തി നാഗാലാന്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട് വോഖ കൊഹിമ ഫേക്ക് ജില്ലകൾ ഇന്നും നാളെയുമായി സംഘം സന്ദർശിക്കും

ബൽഗേരിയൻ തലസ്ഥാനമായ സോഫിയയിൽ കഴിഞ്ഞ് ദിവസം ഇന്ത്യൻ വംശജരെ അഭിസംബോധ്ന് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് ദിവസത്തെ സൈപ്രസ് സന്ദർശ്മത്തിനു ഇന്നലെ വൈകുന്നേരമാണ് ശ്രീ രാ്നാഥ് കോവിന്ദ് സോഫിയയിൽ എത്തിയത് വ്യാപാരത്തിനും നിക്ഷേപത്തിനും ഇന്ത്യയിൽ ഏറെ സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞ രാഷ്ട്രപതി ജനുവരിയിൽ നടക്കുന്ന പ്രവാസി ഭാരതി ദിവസിൽ പങ്കെടുക്കാൻ ബൾഗേരിയയിലെ ഇന്ത്യൻ വംശജരെ ക്ഷണിച്ചു സോഫിയയിലെ വ്യാപാര പ്രതിനിധികളുമായും അദ്ദേഹം ചർച്ച നടത്തി

അടുത്ത മാസം മൂന്നിന് വോട്ടെണ്ണൽ നടക്കും

ജപ്പാനിലെ പ്രധാന നൂഗർങ്ങളായ ക്യോട്ടോയിലും ഒസാക്കയിലും കനത്ത് നാശം കവിതച്ച കൊടുങ്കാറ്റിനെ തുടർന്ന് നിരവധി വിമാന ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് കൊടുങ്കാറ്റ് വീശാൻ ഇടയുള്ള മേഖലകളിലെ ജനങ്ങളോട് ഉടൻ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബേ നിർദ്ദേശിച്ചു പ്രദേശവാസികളെ സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി

കൊല്ലം ജില്ലയിലും എലിപ്പനി ബാധിച്ചതായി സംശയിക്കപ്പെടുന്ന ഒരാൾ മരിച്ചു എട്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇടുക്കി ജില്ലയിൽ ആറ് പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്

കൂടുതൽ ആളുകളിൽ രോഗം സ്ഥിരീകരിക്കുന്നുമുണ്ട്

ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ജസ്റ്റിസുമാരായി എ

ഖാൻവിൽക്കർ ഡി

ചന്ദ്രചൂഡ് എന്നിവരടങ്ങുന്ന ബഞ്ചാണ് വാദം കേൾക്കുന്നത് യുദ്ധ ്വിമാന കരാറിൽ ക്രമക്കേടുകൾ നടന്നതായി ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി

വെള്ളിയാഴ്ച നടക്കുന്ന ചടങ്ങിൽ തുക കൈമാറാനാണ് തീരുമാനം

ഏഷ്യൻ ഗെയിംസിൽ ഒരു സ്വർണ്ണവും രണ്ട് വെള്ളി മെഡലുകളും ഇന്ത്യക്കായി ഹിമദാസ് സ്വന്തമാക്കുകയുണ്ടായി

ഇന്നലെ അലിഗഡിൽ വിവാഹ പാർട്ടി സഞ്ചരിച്ചിരുന്ന ബസ് മറ്റൊരു വാഹനവുമയി കൂട്ടിയിടിച്ചായിരുന്നു അപകടം ആഗ്രാ റോഡിൽ ബസ് ഫിറോസാബാദിലേക്ക് പോകവേയായിരുന്നു അപകടമെന്ന് പോലീസ് പറഞ്ഞു അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ഉത്തർപ്രദേശ്യ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രണ്ട് ലക്ഷ്ടം രൂപ് വീതം സഹായധനം പ്രഖ്യാപിച്ചു

വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ നിരീക്ഷണം ശക്തമാക്കാൻ മഹാരാഷ്ട്ര ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്

സിയാൻ നദീതടങ്ങളിൽ അഭൂതപൂർവ്വമായ വെള്ളപ്പൊക്കം തുടരുമ്പോൾ മറ്റ് മേഖലകളിൽ വരൾച്ചയ്ക്ക് സമാനമായ സാഹചര്യം നിലനിൽക്കുന്നതായി മുഖ്യമന്ത്രി ക്രോന്ദ് ആഭ്യന്തരമന്ത്രിക്ക് അയച്ച കത്തിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തി

ശർമ്മ ഒലി ഇന്ത്യയുമായി ചേർന്ന് നടത്തിയ മേഖലാ സഹകരണ ശ്രമങ്ങൾക്ക് ഒടുവിൽ പതിനെട്ടിന കാഠ്മണ്ഡു പ്രഖ്യാപനം പുറപ്പെടുവിച്ചതായും ശ്രീ

ആഗോളതലത്തിൽ തന്നെ രൂപയുടെ മൂല്യം ഇപ്പോൾ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് ഈ ഘട്ടത്തിൽ ലോക ബാങ്കിൽ നിന്നും എ ഡി ബി യിൽ നിന്നും വായ്പയെടുത്താൽ വായ്പാതുകയുടെ മൂല്യം വളരെ കുറവായിരിക്കുകയും അടയ്ക്കേണ്ട ബാധ്യത വളരെ കൂടുതലായിരിക്കുകയും പത്രകുറിപ്പിൽ അറിയിച്ചു